പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി

സമ്മേളനം ഗ്രേറ്റർ നോയിഡ്യിൽ പുരോഗമിക്കുന്നു

ഇന്തൃയുടെ രണ്ടാം ചാന്ദ്രദൌതൃം ലക്ഷൃത്തിലേക്ക് ന് മാതൃപേടകത്തിൽ നിന്നും വേർപെട്ട വിക്രം ലാൻഡർ ചന്ദ്രനോട് കൂടുതൽ അടുപ്പിക്കാൻ ഇന്ന് പുലർച്ചെ നടത്തിയ അവസാന ദൌത്യവും വിജയം

അദ്ദേഹം ഇന്ന് വൈകിട്ട് ചെന്നൈയിലേക്ക് മടങ്ങും

കോൺഗ്രസ്സ് നേതാവ് ഡി

ശിവകുമാർ അറസ്റ്റിൽ

കിഴക്കൻ രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ നടക്കുന്ന അഞ്ചാമത് ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിലും ഇമ്മൂപ്താമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും പ്രധാനമശ്രി ന്റരേന്ദ്രമോദി പങ്കെടുക്കും ഉച്ചകോടിയുടെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് പ്പ്ളാഡിമർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രാദേശിക അന്താരാഷ്ട്രവിഷയങ്ങൾ പുടിനുമായി ചർച്ച ചെയ്യുമന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ഏഷ്യ പസഫിക് മേഖലയിലെ രാഷ്ട്രങ്ങളുടെ സഹകരണം ശക്തമാക്കുകയാണ് ഫോറത്തിന്റെ പ്രധാന ദൌത്യം

റഷ്യയുടെ കിഴക്കൻ മേഖലയായ വ് ളാഡിവോസ്റ്റോക്കിൽ ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്

യോഗ പ്രോത്സാഹിപ്പിക്കാനുള്ള ആപ്പും പുറത്തിറക്കും

ലോകത്തെ സുസ്ഥിരവികസനത്തിലേക്ക് നയിക്കാനുദ്ദേശിച്ച് അടുത്ത രണ്ടു വർഷത്തേക്ക് അംഗരാഷ്ട്രങ്ങൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സമ്മേളനം ആസൂത്രണം ചെയ്യും വരൾച്ചു മൂലമുള്ള മരുഭൂമിവൽക്കരണം തടയുന്നതിൽ ഇന്ത്യ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നതായി യു

ഡി യുടെ ലെയ്സൺ ഓഫീസറായ മാർക്കോസ് മൊന്റോറിയോ ആകാശവാണിയോട് പറഞ്ഞു

ജയശങ്കർ ഇന്നളെ മാല്ദ്ദീപ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് നഷീദുമായി മാലിയ്ടിൽ ക്ടൂടിക്കാഴ്ച നടത്തി

നാലാമത് ഇൻഡ്യൻ മഹാസമുദ്ര കോൺഫറൻസ്ട്രിൽ പങ്കെടുക്കാനാണ് ശ്രീ ജയശങ്കർ മാലദ്വീപിൽ എത്തിയത്

ന്യൂഡൽഹിയിൽ സംസ്ഥാനമന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും അഞ്ചാമത് ദേശീയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാനതലത്തിൽ തന്നെ വിലസ്ഥിരതാ സംവിധാനം നടപ്പിലാക്കണമെന്നും ശ്രീ പസ്വാൻ ആവശ്യപ്പെട്ടു

മാതൃപേടകത്തിൽ നിന്ന് വേർപെട്ട് പൂർണമായും സ്വതന്ത്രമായ വിക്രം ലാൻഡർ ചന്ദ്രനോട് കൂടുതൽ അടുപ്പിക്കാൻ ഇന്ന് പുലർച്ചെ നടത്തിയ രണ്ടാം ദൌത്യവും വിജയിച്ചു

സ്വതന്ത്ര സഞ്ചാരം ആരംഭിച്ച വിക്രം ലാൻഡറിന്റെ ആദ്യ ദിശാക്രമീകരണം ഇന്നലെ രാവിലെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ മൂന്നേമുക്കാലോടെ രണ്ടാം ദിശാമാറ്റം നടത്തിയത് വിക്രംലാൻഡറിലെ ജ്വലന സംവിധാനം ഒമ്പത് സെക്കന്റ് ഉത്തേജിപ്പിച്ചാണ് ദിശാമാറ്റം സാധ്യമാക്കിയത്

രണ്ട് പേടകങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെസ്സ് ഐ എസ് ആർ ഒ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണ്ടു

സംസ്ഥാന ഗവൺമെന്റിന്റെ പുനരധിവാസ നയപ്രകാരം കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് സഹായം ലഭ്യമാക്കുമെന്നും പോലീസ് വൃക്തമാക്കി

ഗവർണർ പി സദാശിവം ഇന്നു വൈകീട്ട് അഞ്ചിനുള്ള ചെന്നൈ വിമാനത്തിൽ മടങ്ങും ഇന്നലെ രാത്രി മാസ്ക്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കു യാത്രയയപ്പു വിരുന്നു നൽകി

നാലുമണിയോടെ അദ്ദേഹം രാജ്ഭവനോട് വിടപറഞ്ഞു വിമാനത്താവളത്തിലേക്കു പോകും അവിടെ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകും

തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നവ കേരളം യാഥാർത്ഥ്യമാകുന്നതോടെ കേരള മോഡൽ ലോകത്തിന് തന്നെ മാതൃക ആകുമെന്നും ശ്രീ സദാശിവം അഭിപ്രായപ്പെട്ടു മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ് കേരളത്തിന്റെ ഗവർണർ പദവിയിൽ നിന്ന് പടിയിട്ടുറങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാമൂഹ്യ നീത്തി്ട് ല്പീ്ഗസമത്വം എന്നിവയിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ മാതൃക്കാപ്പ്രമാണെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു

ജോസ് ടോമിന്റെ ചിഹ്നം സംബന്ധിച്ച അനിശ്ചിതത്വം പത്രികാസമർപ്പണത്തിനു മുന്നേ പരിഹരിക്കുമെന്ന് യുഡിഎഫ് നേതൃത്വം അറിയിച്ചു

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പു കൺവെൻഷൻ ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

രാവിലെ പത്തിന് വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

ശിവകുമാർ അറസ്റ്റിൽ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 ഇന്നലെ ചോദ്യം ചെയ്യലിനായി ന്യൂഡൽഹിയിലെ ഹെഡ് കാർട്ടേഴ്സിൽ എത്തിയപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധ നിയമ പ്രകാരമാണ് അറസ്റ്റ് ശ്രീ ശിവകുമാറിനെ ഇന്ന് ന്യൂഡൽഹിയിലെ കോടതിയിൽ ഹാജരാക്കും

ന്യൂഡൽക്ടിയിൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പ്രക്ടിശ്രനവേളയിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം

എസ്

എസ്

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ സൈനിക പരിശീലനങ്ങളിൽ ഒന്നാണിത്

കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന വായ്പകളുടെ കേന്ദ്രീകൃത വായ്പ രജിസ്ട്രി തയാറാക്കണമെന്ന് സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രേഖകളുടെ ആധികാരികത പരിശോധിക്കാനുള്ള സംവിധാനം വേണമെന്നും റിപ്പോർട്ടിലുണ്ട്

ആദ്യ മൂന്ന് ഏകദിനങ്ങളും ജയിച്ച് ഇന്ത്യ എ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കിക്കഴിഞ്ഞു പരമ്പര നേടിയ ഇന്ത്യ എ കാര്യമായ മാറ്റങ്ങളോടെയാണ് ഇന്ന് ഇറങ്ങുന്നത്

ഇഷാൻ കിഷന് പകരം മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറാകും ഫോം വീണ്ടെടുക്കുന്നതിനായി എ ടീമിലെത്തിയ സീനിയർ താരം ശിഖർ ധവാനും കളിക്കും

കൊല്ലം ആലപ്പൂഴ് ക്ലോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്

ശക്തമായ കാറ്റിനു സാധ്യതയുള്ളതിനാൽ തെക്കു പടിഞ്ഞാറ് മധ്യപടിഞ്ഞാറ് അറബിക്കടലിൽ മത്സ്യ ബന്ധനത്തിനു പോകരുതെന്നു മുന്നറിയിപ്പുണ്ട്

ഇപ്പോഴത്തെ സാഹര്യത്തിൽ തുലാവർഷം കൂടി നന്നായി ലഭിച്ചാൽ വലിയ ഡാമുകൾ ഉൾപ്പെടെ നിറയുമെന്നാണ് പ്രതീക്ഷ